പൌരത്യ യിലൂടെ പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

മഹാരാഷ്ട്രയിൽ മന്ത്രിസ്ട് വികസിപ്പിച്ചു

ഉപമുഖ്യമന്ത്രി

സാങ്കേതിക പുരോഗതിയ്ക്കായി കുട്ടികളിൽ ശാസ്ത്രാവബോധം വളർത്തണമെന്ന് ഉപരാഷ്ട്രപതി എം

പീഢനങ്ങൾക്കു വിധ്യേരിട്ടിയ് അഭയാർത്ഥികൾക്ക് രാജ്യത്ത് പൌരത്വം നൽകൂസ്സ്തിനെ കുറിച്ചാണ് നിയമം അനുശാസിക്കുന്നതെന്നു് അല്ലാതെ ആരുടേയും പൌരത്വം കവർന്നെടുക്കുന്നതിനെക്കുറിച്ചല്ലെന്നും ടിറ്റർ സന്ദേശത്തിൽ ശ്രീ മോദി പറഞ്ഞു ഈ നിയമവുമായി ബന്ധപ്പെട്ട കാരൃങ്ങൾ സദ്ഗുരു വിശദമാക്കുന്ന വീഡിയോ ലിങ്കും മറ്റൊരു ട്വിറ്റർ സന്ദേശത്തിൽ ശ്രീ

വീഡിയോ നമ്മുടെ സാഹോദരൃത്തെയും സംസ്ക്കാരത്തെയും ഉയർത്തിപ്പിടിക്കുന്നതാണെന്നും ശ്രീ മോദി പറഞ്ഞു

കേന്ദ്ര ഗവൺമെന്റിന്റെ ചരിത്രപരമായ തീരുമാനം എന്നാണ് ഇന്ത്യൻ സമൂഹം നിയമത്തെ വിശേഷിപ്പിച്ചത് ഓവർസീസ് ഫ്രെണ്ട്സ് ഓഫ് ബി ജെ

എസ്

അധ്യക്ഷൻ കൃഷ്ണ റെഡ്റ്റിയുടെ നേതൃത്വത്തിൽ ലോങ് ഐലന്റിൽ പരിപാടി സംഘടിപ്പിച്ചത്

പങ്കാളികളായവരിൽ നിന്നൂർ ് നഷ്ടപരിഹാരം ഈടാക്കുമെന്നും റെയിൽവേ ബോർഡ് ക്ലിച്ച്യർമാൻ വിനോദ് കുമാർ യാദവ് ന്യൂഡൽഹിയിൽ മാധ്യ്മുങ്ങ്ളോട് പറഞ്ഞു

സി

നേതാവ് അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു

മുൻ മുഖ്യമന്ത്രി അശോക്ചവാൻ വിജയ് വടെറ്റിവാർ എന്നിവർ കോൺഗ്രസിൽ നിന്നും വർഷ ഗായിക്ക്വാഡ് ദിലീപ് വൽസേ പാട്ടീൽ ധനഞ്ജയ് മുണ്ടേ അനിൽ ദേഷ്മുഖ് ഹസൻ മുഷ്റിഫ് ഡോ

സി

എൽ എ മാരായ നാഷണൽ കോൺഫറൻസിലെ ഇ്ഷ്ഫ്ക് ജബാർ ഗുലാം നബി ഭട്ട് പീപ്പിൾസ് ഡമോക്രാളിക് പാർട്ടിയിലെ മുൻ മന്ത്രി സഹൂർ അഹമ്മദ് മിർ ്ട്യാപ്സിർ റേഷി ബഷീർ അഹമ്മദ് മിർ എന്നിവരെയാണ് മോച്ചിപ്പിച്ചത് ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുന്ന ബിൽ പാർല്മെന്റിൽ അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ നേതാക്കളെ കരുതൽ തടങ്കലിലാക്കിയിരുന്നത്

വന വിസ്തൃതയും മരങ്ങളും വർദ്ധിച്ച ചില ലോക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നും അദ്ദേഹം പറഞ്ഞു

ജലം ശുചിത്വം ഊർജം വ്യവസായം അടിസ്ഥാന സൌകര്യങ്ങൾ എന്നീ കാര്യങ്ങളിലെ മികച്ച പ്രവർത്തനമാണ് സ്ഥാനം മെച്ചപ്പെടുത്താൻ സഹായിച്ചത്

ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ മൂന്നാം സ്ഥാനത്താണ് ഉത്തർപ്രദേശ് ഒഡീഷ സിക്കിം ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾ പുരോഗതി കൈവരിച്ചതായി സൂചികയിൽ കാണുന്നു

പോഷകാഹാരം ലിംഗസമത്വം എന്നിവയാണ് കൂടുതൽ ശ്രദ്ധ വേണ്ട മേഖലകളെന്നും ശ്രീ

ദാരിദ്രൃം വിദ്യാഭ്യാസം ആരോഗൃം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ച വയ്ക്കാൻ സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക പ്രസിദ്ധപ്പെടുത്തുന്നതിലൂടെ കഴിയും

ന്യൂസ് ഡസ്ക് ആകാശവാണ്ടി

ബി ഐ

ജമ്മുകശ്മീരിലെ വിവിധ ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെയും ജില്ലാ മജിസ്ട്രേറ്റുമാരുടെയും വസതികളിലാണ് റെയ്ഡ് നടന്നത് അനധികൃതമായി രണ്ട് ലക്ഷത്തിലധികം ആയുധ ലൈസൻസുകൾ നൽകി എന്ന ആരോപണവുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടത്തിയത് ജമ്മുകശ്മീർ നിവാസികളല്ലാത്തവർക്ക് പണം വാങ്ങി നിയമവിരുദ്ധമായി ലൈസൻസ് നൽകി എന്നാണ് ആരോപണം

സാങ്കേതിക പുരോഗതിക്ക് സഹായകമാകുന്ന രീതിയിൽ യുവ മനസുകളിൽ ശാസ്ത്ര അഭിരുചി വളർത്തിയെടുക്കേണ്ടതുണ്ടെന്ന് ശ്രീ

പരീക്ഷണശാലകളിൽ മാത്രമൊതുങ്ങുന്ന കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ശാസ്ത്ര ക് സാങ്കേതിക മുന്നേറ്റം സാധൃമല്ലെന്നും തിരുവനന്തപുരം നട്ടിലാഞ്ചിറ മാർ ഇവാനിയോസ് വിദ്യാനഗറിൽ ദേശീയ ബാലശ്രാ്സ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യവെ ഉപരാഷ്ട്രപതി പറ്റഞ്ഞു

നമ്മുടെ സംസ്കാരവും പ്രകൃതിയും സംരക്ഷിച്ചു കൊണ്ട് നല്ല ഭാവിക്കായി പ്രവർത്തിക്കാനും അദ്ദേഹം ആഹാനം ചെയ്തു

പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിന് പ്രിമയ്ക്കുകയായിരുന്നു

ഇന്ത്യയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ പി

ബി ഐ ബാഹ്യ ബഞ്ച് മാർക്ക് അടിസ്ഥാനമാക്കിയുള്ള പലിശ നിരക്ക് കുറച്ചു

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്

ഐ ബാഹ്യ ബഞ്ച് മാർക്ക് അടിസ്ഥാനമാക്കിയുള്ള നിരക്കിളവ് ജനുവരി ഒന്നു മുതൽ നിലവിൽ വരും

റിപ്പോ നിരക്കാണ് ബാഹ്യ ബഞ്ച് മാർക്ക് നിരക്കായി റിസർവ്വ് ബാങ്ക് ഓഫ് ഇന്തൃ നിശ്ചയിച്ചിരിക്കുന്നത് റിസർവ്വ് ബാങ്ക് വാണിജൃ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പകളുടെ പലിശയാണ് റിപ്പോ നിരക്ക്

ന്യൂസ്ഡസ്ക് ആകാശവാണി

ആർ

എഫ് അധികൃതർ അറിയിച്ചു ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയാണ് സി

എഫ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി വാദ്രയ്ക്ക് നൽകുന്നത് മുൻകൂർ അറിയിപ്പ് നൽകാതെ നിശ്ചയിച്ച പരിപാടിയിൽ നിന്നും വ്യതിചലിച്ചാണ് ലഖ്നൌയാത്ര നടത്തിയതെന്നും അതിനാൽ സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻകൂട്ടി നടത്താൻ സാധിച്ചില്ല എന്നും സി

എഫ് പ്രസ്താവനയിൽ പറഞ്ഞു

വിമാന സർവ്വീസുകളുടെ തൽസ്ഥിതി വിവരങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം യാത്രയ്ക്ക് തയാറെടുക്കാൻ യാത്രാക്കാരോട് വിമാന കമ്പനികൾ അഭ്യർത്ഥിച്ചു